അതേസമയം ലോക്ഡൌൺ പ്രഖ്യാപിച്ചശേഷം രാജ്യത്ത് കോവിഡ് പടരുന്ന നിരക്ക് കുറഞ്ഞതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വൃക്തമാക്കി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

പാവങ്ങളുടെ സുരക്ഷയ്ക്കായുള്ള പുതിയ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ യുവാക്കളും ഉദ്യോഗസ്ഥരും മുൻകൈയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

മെയ് മൂന്നുവരെ നീണ്ടുനിൽക്കുന്ന ലോക്ഡൌണിൽ നിയന്ത്രിത ഇളവുകളാണ് ഈ പ്രദേശങ്ങൾക്ക് നൽകിയിരിക്കുന്നത്

കോഴിവളർത്തൽ കാലിവളർത്തൽ മേഖല തുടങ്ങിയവയ്ക്കും പ്രവർത്തനാനുമതി ഉണ്ട് ഗ്രാമീണ മേഖലയിലെ ഭക്ഷ്യ സംസ്കരണ വ്യവസായങ്ങൾ ഐ ടി ഹാർഡ്വെയർ നിർമ്മാണം കൽക്കരി ഖനികൾ ധാതു ഉത്പ്പാദന മേഖല പാക്കേജിംഗ് വസ്തുക്കളുടെ ഉൽപാദനം എന്നിവയ്ക്കും പ്രവർത്തിക്കാം

ലോക്ക്ഡൌൺ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സംസ്ഥാനങ്ങളിൽ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി ആഭ്യന്തര മന്ത്രാലയ വക്താവ് വൃക്തമാക്കി ഇന്നലെ ഇത് സംബന്ധിച്ച് ആഭൃന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് കത്ത് അയച്ചിരുന്നു

മാർഗനിർദേശങ്ങൾക്ക് അനുസൃതമായി ലോക് ഡൌൺ നടപ്പാക്കുന്നതിലെ പരാതികൾ അവശ്യസാധനങ്ങളുടെ വിതരണം സാമൂഹിക അകലം ആരോഗ്യപരിപാലന സംവിധാനങ്ങൾ ആരോഗ്യപ്രവർത്തകരുടെ സുരക്ഷപാവപ്പെട്ടവർക്കും കുടിയേറ്റ തൊഴിലാളികൾക്കുമായുള്ള ദൂരിതാശാസ ക്യാമ്പുകളിലെ സാഹചരൃങ്ങൾ എന്നിവ സംബന്ധിച്ച് സംഘം കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിക്കും

പ്രധാനമന്ത്രിയുടെ ലോക്ഡൌൺ നിർദ്ദേശം ജനങ്ങൾ കൃത്യമായി പാലിച്ചതിൽ നന്ദി അറിയിക്കുവെന്നും ശ്രീ സോനോവാൾ ആകാശവാണിയോട് പറഞ്ഞു മതപരമായ ചടങ്ങുകൾ വീടിനുള്ളിൽ തന്നെ ആചരിക്കണമെന്നും സാമൂഹിക അകലം പാലിക്കണമെന്നും അദ്ദേഹം ജനങ്ങളോട് ആവശ്യപ്പെട്ടു

ഇത് നിർത്തിവെയ്ക്കാൻ കമ്പനികളോട് നിർദ്ദേശിച്ചതായും അദ്ദേഹം പറഞ്ഞു

ആറുപേരും കണ്ണൂർ ജില്ലയിൽ നിന്നുള്ളവരാണ്

ഒരാൾക്ക്ക്സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്

കേരളത്തിന്റെ പ്രതിരോധ നടപടികൾ ഫലപ്രദമായി നടക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു

ഇളവുകൾ വരുത്തിയത് ചട്ടലംഘനമാണെന്ന് കാട്ടി കേന്ദ്ര ആഭ്യന്തരമന്ത്രാലയം ചീഫ് സെക്രട്ടറിക്ക് കത്ത് അയച്ചിരുന്നു ഇതിനെ തുടർന്ന് ഇന്ന് നടന്ന ഉന്നതതലയോഗത്തെ തുടർന്നാണ് നടപടി ലോക്ഡൌൺ നിർദ്ദേശങ്ങൾ കർശനമായി തന്നെ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വൃക്തമാക്കി ് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ബാർബർഷോപ്പുകൾ തുറന്ന് പ്രവർത്തിക്കില്ല അനുവദിക്കില്ല

സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ലോക്ഡൌണിനെതിരെ അമേരിക്കയിൽ പ്രതിഷേധങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്

എന്നാൽ ഇവിടെ മരണനിരക്ക് കുറയുന്നതായാണ് റിപ്പോർട്ട്

സൂഡാൻ ലൈബീരിയ മൊറോക്കോ ഗ്വാട്ടിമാല തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കൂടുതൽ പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു

എ

സൌദിയ്ക്കിൽ മ്രണസംഖ്യ നൂറിനോട് അടുക്കുന്നു